ഏഴ് ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹൂസ്റ്റണിൽ ്ഹൌഡി മോഡി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സ്ക്മ്മേളനത്തിൽ സംബന്ധിക്കും

അമേരിക്കൻ സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ഹൂസ്റ്റണിൽ എത്തിയ പ്രധാനമന്ത്രിക്ട്രമുഖ ആഗോള ഊർജജ കമ്പനി മേധാവികളുമായി ക്ടൂടിക്കാഴ്ച നടത്തി

റാഫേൽ യുദ്ധവിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമാകുന്നതോടെ ദക്ഷിണേഷ്യൻ മേഖലയിൽ ഇന്ത്യ അപ്രമാദിത്വം നേടുമെന്ന് വ്യോമസേന മേധാവി ബി

ചടങ്ങിന്റെ ഭാഗമായിസംഘടിപ്പിക്കുന്ന സാംസ്കാരിക പരിപാടിയിൽകൌമാര പ്രതിഭ സ്പർശ്ഷാ പങ്കെടുക്കുന്ന സംഗീത പരിപാടിയുംഅരങ്ങേറും

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും യു

ചടങ്ങ് നടക്കുന്ന എൻ

ജി സ്റ്റേഡിയം നിറഞ്ഞുകവിയുമെന്നും പ്രധാനമന്ത്രിയെ വരവേറ്റുകൊണ്ട് ഭാരത്മാതാ കി ജയ് വിളികൾ മുഴങ്ങുമെന്നും ആകാശവാണി പ്രതിനിധി റിപ്പോർട്ട്ചെയ്യുന്നു ഹൌഡിമോദി പരിപാടിയിൽ പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിഗാന്ധിമ്യൂസിയംസന്ദർശിക്കും ഹൂസ്റ്റണിലെ ഗുജറാത്തി സമാജകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടത്തുന്ന ിശ്ശൂരീ മോദി സിദ്ധി വിനായക ക്ഷേത്രംസന്ദർശിച്ച ശേഷംന്യൂയോർക്ക്ടില്ലേക്ക്തിരിക്കും

ഓളം ഇന്ത്യയിലെ സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ട് മോദിഗവൺമെന്റ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണംഉൾപ്പെടെയുള്ള നടപടികൾ കമ്പനി മേധാവികൾസാഗതംചെയ്തു

പാകിസ്ഥാന്റെ സഹായത്തോടെ ഉള്ള ഭീകരവാദത്തിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന കശ്മീരി പണ്ട്ഡിറ്റുക്ളുടെ അഭ്യുദയത്തിന് ഗവൺമെന്റ് എടുത്ത നിലപാടുകൾ സഹായിക്കുമെന്ന് ശ്രീ മോദി പറഞ്ഞു അമേരിക്കൻ സന്ദർശനത്തിന്റെ ആദ്യ ദിനത്തിൽ ശ്രീ മോദി ദാവൂദി ബൊഹ്റാ സിക്ക് എന്നീ വിഭാഗങ്ങളിൽപ്പെട്ടവരുമായും ആശയവിനിമയം നടത്തി

ദൂരദർശന് അനുവദിച്ച പ്രത്യേകഅഭിമുഖത്തിലാണ് അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് റാഫേൽഉൾപ്പെടുന്ന വ്യോമസേനയുടെകരുത്തിന് പകരം വെയ്ക്കാൻ മറ്റൊന്നിനും കഴിയില്ലെന്നുംഅദ്ദേഹംവൃക്തമാക്കി വ്യോമസേനയിൽപൈലറ്റുമാരുടെ എണ്ണത്തിൽ കുറവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

ഒരു ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയെന്ന ഉത്തർപ്രദേശിന്റെ ലുക്കൂട്ടും സാക്ഷാത്കരിക്കാൻ ഈ നടപടി സഹായകരമാകുമെന്ന് അദ്ദേഷ്ട് ്കൂട്ടിച്ചേർത്തു

കാശ്മീർ വിഷയത്തിൽ ഗവൺമെന്റ് എടുത്ത നിലപാട് അവിടുത്തെ വികസനത്തിന് വഴിയൊരുക്കുമെന്നും പാട്നയിൽ ജനജാഗരൺ സഭയെ അഭിസംബോധന ചെയ്യവേ ശ്രീ സിങ് വ്യക്തമാക്കി ഇന്ത്യൻ നിലപാടിനെതിരെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ നേടാൻ പാകിസ്ഥാൻ പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും കശ്മീർ വിഷയത്തിൽ ഒരു രാജ്യത്തിന്റേയും പിന്തുണ പാകിസ്ഥാന് ലഭിച്ചിട്ടില്ലെന്നും ശ്രീ സിങ് പറഞ്ഞു

ഇത് ബി ജെ

വരും ദിനങ്ങളിൽ കാശ്മീരിൽ നിന്നും ഭീകര വാദത്തെ തുടച്ചു നീക്കുമെന്ന് പറഞ്ഞ ഷാ നെഹ്റുവിന്റെ അനുചിതമായ നടപടികളാണ് കാശ്മീരിന്റെ ഒരു ഭാഗം നഷ്ടപ്പെടാൻ ഇടയാക്കിയതെന്ന് കൂട്ടിച്ചേർത്തു പാകിസ്ഥാനുമായി അനവസരത്തിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടില്ലായിരുന്നെങ്കിൽ പാക് അധീന കാശ്മീർ എന്നത് ഉണ്ടാകുമായിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു നെഹ്റുവിനെക്കാൾ നന്നായി കാശ്മീർ പ്രശ്നം കൈകാരൃം ചെയ്യാൻ സർദാർ പട്ടേലിന് കഴിയുമായിരുന്നുവെന്നും ആഭ്യന്തര മന്ത്രി അമിത് ഷാ കൂട്ടിച്ചേർത്തു

കാശ്മീർ ഇതുവരെ കുടുംബവാഴ്ചയുടെ കീഴിലായിരുന്നുവെന്നും തങ്ങളുടെ ഭരണക്കാലത്ത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചവർ ഇപ്പോൾ ഭയചകിതരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അഴിമതിക്കാരായ ഇവർ കാശ്മീരിൽ അഴിമതി വിരുദ്ധ സംവിധാനം നിലവിൽ ്വരുന്നതിനെ എന്നും എതിർത്ത് പോന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

തുടക്കത്തിൽ തന്നെ ഇന്ത്യയ്ക്ക് രോഹിത് ധർമ്മയുടെ വിക്കറ്റ് നഷ്ടമായി

ആദ്യ മത്സരം മഴമൂലം ഉപേക്ഷിച്ചിരുന്നു രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം